കാസർകോട് കൊലകേസിൽ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ അടക്കം ഏഴു പേർ പൊലീസ് കസ്റ്റഡിയിൽ പാർട്ടിയുടെ അറിവോടെയല്ല കാസർകോട്ടെ കൊലപാത കമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജെയ്ഷെ മുഹമ്മദും ഐ എസ് ഐയുമാണ് കശ്മീരിലെ ചാവേർ ബോംബാക്രമണത്തിന് പിന്നിലെന്ന് സൈന്യം

കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഗവ വഹിക്കും വസന്ത കുമാറിന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ച് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് ഗവ

ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട്ട് നടക്കും

കോവളം മുതൽ ബേക്കൽ വരെ ജലപാതയുടെ നിർമ്മാണം അടുത്ത വർഷം തന്നെ പൂർത്തിയാക്കും ജനങ്ങളിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ കഴി ഞ്ഞെന്നും നാട്ട് നിക്ഷേപ സൌഹൃദമല്ല എന്ന മനോഭാവത്തിന് മാറ്റം വന്നെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഇത് പുതിയ വ്യവസായ സംരംഭകർക്ക് സഹായകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആവർത്തിക്കുന്ന ഹർത്താലുകൾ നിയന്ത്രിക്കുന്നതിന് ഗവ സർവ്വകക്ഷിയോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കാസർക്കോട് പെരിയയിലെ ഇരട്ടകൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണറെ സന്ദർശിച്ചു ഗവർണർ പ്രശ്നം ഗൌരവത്തോടെ യാണ് കേട്ടതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സിപിഐഎമ്മിന്റെ ആസൂത്രിതമായ കൊലപാതക മായിരുന്നു കാസർക്കോട്ടെതെന്നും ഇങ്ങനെയാണ് പോകുന്ന തെങ്കിൽ കേരളത്തിൽ ഭരണമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് ഗവർണറെ ധരിപ്പിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു എൽ ഡി എഫ് ഗവ

കുറ്റ വാളികളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറായി ഈ ഗവ മാറി യെന്നും ഒരു യാഥാർത്ഥ പ്രതിയെയെങ്കിലും ഇതുവരെയായി പിടിച്ചില്ലെന്നും ഗവർണറോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു

കാസർക്കോട്ടെ ഇരട്ട കൊലപാതക കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യ പ്പെട്ടു കണ്ണൂർ ജില്ലയിൽ ഇതുവരെയുണ്ടായ ആക്രമണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അറിവും സമ്മതവും ഉണ്ടായിരുന്നുവെന്നും മുല്ല പ്പള്ളി ആരോപിച്ചു സംസ്ഥാനത്ത് പിണറായി കോടിയേരി കൂട്ടുകെട്ട് കേന്ദ്രത്തിലെ മോദി അമിത്ഷാ കൂട്ടുകെട്ട് പോലെ യാണെന്നും ഇരുനേതാക്കളും സ്റ്റാലിനിസ്റ്റുകളും ക്രിമിനൽ മന സ്സുള്ളവരുമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ഇവർക്ക് തൊഴി ലാളികളോട് സ്നേഹവും കരുണയും ഇല്ല അരനൂറ്റാണ്ടായി കേരളത്തിലെ സിപിഐഎം ഭീകരസംഘടനയായി അധഃപതി ച്ചിരിക്കുകയാണ്

കാസർക്കോട്ടെ ഇരട്ട കൊലപാതകത്തിന് ടി പി ചന്ദ്രശേഖ രൻ ഷുഹൈബ് കൊലപാതകങ്ങളുമായി സമാനതകളുണ്ട് കൊലപാതകം നടത്തിയ ശൈലിയും മുറിവേൽപ്പിക്കപ്പെട്ട രീതിയും സിപിഐഎം പരിശീലിപ്പിച്ച വാടക കൊലയാളിക ളാണ് കൃത്യം നടത്തിയതെന്ന് തെളിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് കാസർക്കോട്ടെ കൊലപാതകത്തിന് വഴിവെച്ചതെന്നും മുല്ല പ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി സിപിഐഎമ്മിന്റെ അറിവോടെയല്ലെ കാസർക്കോട്ടെ കൊലപാതകമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ തൃശൂർ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാ നത്തിന് വിരുദ്ധമായ നടപടിയാണ് കാസർക്കോട്ടുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു

അതിനെ പരസ്യ മായി പാർട്ടി നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നും കോടി യേരി വ്യക്തമാക്കി പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉഭയകക്ഷി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കൊലപാതക രാഷ്ട്രീയത്തെ ആരും ന്യായീകരിക്കരുതെന്നും കോടിയേരി പറഞ്ഞു സിപിഐഎം പ്രവർത്തകർ ആരും അക്രമങ്ങൾക്ക് മുതിരരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പാർട്ടി നേതാക്കളെ തെറ്റായി പ്രതി ചേർത്താൽ അത് അംഗീകരിക്കില്ലെന്നും ഇക്കാര്യം ജനങ്ങൾ അന്വേഷിക്കു കയും പ്രിശോധിക്കുകയും ചെയ്യുമെന്നും വാർത്താലേഖക രുടെ ചോദ്യത്തിന് കോടിയേരി മറുപടി നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതക കേസിലെ പൊലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കെ പി സി സി പ്രചാരണ വിഭാഗം തലവൻ കെ മുരളീധരൻ എം എൽ എ പറഞ്ഞു യഥാർത്ഥ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ കോൺഗ്രസ് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല ഷുഹൈബ് വധക്കേസിലെ പ്രതികളെ പിടികൂടാത്തിൽ പാർട്ടിക്ക് ഇപ്പോഴും അമർഷമുണ്ട് അത് നിലനിൽക്കെയാണ് കാസർക്കോട്ടെ സംഭവം ഉണ്ടായത് നിയമത്തെ ബഹുമാനി ക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നിയമം ക്യ്യിലെടുക്കാൻ ഗവൺമെന്റ് പ്രേരിപ്പിക്കരുതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പെരിയയിലെ ഇരട്ട കൊലപാതക് കേസിൽ അന്വേഷണം കൃത്യമായ രീതിയിലാണ് നടക്കുന്നതെന്ന് കാസർക്കോട് എസ് പി എ ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേസിൽ നല്ല പുരോഗതിയുണ്ടെന്നും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ വൈകീട്ടോടെ വൃക്തത ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവസ്ഥലത്തു നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിലേ ക്ക് വന്ന കോളുകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നു ണ്ടെന്നും എസ് പി വ്യക്തമാക്കി ് ഇരട്ടകൊലപാതക കേസിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്ത സംസ്ഥാന ഗവൺമെന്റി നെതിരെ നാളെ എല്ലാ പഞ്ചായത്തുകളിലും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊച്ചിയിൽ അറിയിച്ചു ഇന്നും നാളെയും കോൺഗ്രസ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ദുഃഖാചരണം നടത്തുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു കണ്ണൂർ വീവേഴ്സ് സർപ്പീസ് സെന്റർ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സ്മൃതി ഇറാനി വീഡിയോ കോൺഫ റൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്തു കലക്ടറേറ്റിലെ നാഷ ണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിലായിരുന്നു ചടങ്ങ് ഭീകരസംഘടനയായ ജയ്ഷെ മുഹമ്മദും പാക്കിസ്ഥാന്റെ ഐ എസ് ഐ ചാരസംഘടനയുമാണ് കശ്മീർ താഴ്വരയിലെ ചാവേർ ബോംബാക്രമണത്തിന് പിന്നിലെന്ന് ചിനാർ കോർപ്സിന്റെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ക് ജെ എസ് ധില്ലൻ ശ്രീനഗറിൽ അറിയിച്ചു സൈനൃത്തിന്റെ തിരിച്ചടിയിൽ താഴ്വരയിലെ ജയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനാ നേതൃത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു കശ്മീരിലെ ഭീകരപ്രവർത്തകരുടെ അമ്മമാർ മക്കളോട് തോക്ക് താഴെവെക്കാൻ ഉപദേശിക്കണം താഴ്വരയിൽ തോക്ക് എടുക്കുന്നവരെ ഇല്ലാതാക്കുമെന്നും ഇനിയൊരു മുന്നറിയിപ്പു കൂടിയുണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരവാദികൾ ഒരു ദയയും പ്രതീക്ഷിക്കേണ്ടെന്നും ധില്ലൻ പറഞ്ഞു റെയിൽവെ ഡീസൽ എഞ്ചിൻ പരിവർത്തനപ്പെടുത്തി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ വൈദ്യുതി എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു

വാരണാസിയിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളായിരുന്ന സന്ത്രവിദാസിന്റെ ക്ഷേത്രവും പ്രധാനമന്ത്രി സന്ദർശിച്ചു

ആറ്റുകാൽ പൊങ്കാല നാളെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി

പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ ഇന്നുച്ചക്ക് രണ്ട് മുതൽ നാളെ രാത്രി എട്ട് വരെ ഗതാഗുത് നിയന്ത്രണം ഏർപ്പെടു ത്തി പൊങ്കാല യിൽ പ്ങ്കെ ടു ക്കു ന്ന വർക്കാ യി കെഎസ്ആർടിസി പ്രത്യേക സർവീസുകൾ നടത്തും അരിയിൽ ഷുക്കൂർ വധക്കേസ് വിചാരണ തലശ്ശേരിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം കോടതി ഇന്ന് വീണ്ടും പരിഗണി ക്കും തലശ്ശേരി സെഷൻസ് കോടതിയാണ് കേസിൽ വാദം കേൾക്കുന്നത് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കാണിച്ച് പി ജയരാജനും ടി വി രാജേഷ് എം എൽ എയും സമർപ്പിച്ച വിടു തൽ ഹർജിയും കോടതി പരിഗണിക്കും

പള്ളിയിൽ പ്രവേശിക്കാൻ സംരക്ഷണം വേണമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗക്കാ രുടെ വാദം പ്രശ്നം ഒത്തുതീർക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചെന്നും കോടതി ഇടപെടരുതെന്നുമാണ് യാക്കോ ബായ വിഭാഗക്കാരുടെ വാദം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് സെക്ര ട്ട റിയേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കെ എസ് ആർ ടി സി താൽക്കാലിക ജീവനക്കാരുടെ സമരപന്തൽ പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ച് യുവതി മര ത്തിന് മുകളിൽ കയറി ആത്മഹത്യക്കു ശ്രമിച്ചു ആലപ്പുഴ സ്വദേശി ഡിനിയയാണ് ആത്മഹത്യാശ്രമം നടത്തിയത്

ഹയർസെക്കണ്ടറി മേഖലയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് ഹയർ സെക്കണ്ടറി അധ്യാപക സംഘടനയായ എഫ് എച്ച് എസ് ടി എ വൈകീട്ട് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ധർണ നടത്തും കഥാകൃത്ത് യു കെ കുമാരൻ ഉദ്ഘാടനം ചെയ്യു മെന്ന് സംഘാടകർ അറിയിച്ചു ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന് ഉച്ചയോടെ മകം തൊഴാ നായി നട തുറക്കും രാത്രി എട്ടര വരെയാണ് ചടങ്ങ് ക്ഷേത്ര ത്തിൽ വൻ ഭക്തജന തിരക്കനുഭവപ്പെടുന്നുണ്ട്